സംസ്ഥാനത്തിന് ആശ്ചാസ്മായി കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം ക്ടൂടുന്നു പൂർണമായും ആശ്വസിക്കാൻ സമയമായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ

ആഗോള മരണസംഖ്യ ഒരു ലക്ഷം കടന്നു രാജ്യത്ത് കോവിഡിന്റെ സാമൂഹൃവൃാപനം ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം രോഗപ്രതിരോധ മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോകിന്റെ മതിയായ ശേഖരം ഉണ്ടെന്നും വിശദീകരണം

കൂടുതൽ സ്ഥാപനങ്ങൾക്കും വൃവസായങ്ങൾക്കും പ്രവർത്തനാനുമതി

രാജ്യത്തെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ പ്രധാനമന്ത്രി യോഗത്തിൽ അറിയിച്ചു ഇത് സംബന്ധിച്ച് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും അഭിപ്രായം പ്രധാനമന്ത്രി ആരായും അതത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വൃക്തമാക്കാൻ അവസരമുണ്ടാകും

സമ്പർക്കം വഴി തന്നെയാണ് രോഗം പിടിപെട്ടത്

കുടുംബാംഗങ്ങൾക്ക് രോഗഫലം നെഗറ്റീവായെന്നും മന്ത്രി പറഞ്ഞു ഇദ്ദേഹത്തിന് കേരളത്തിൽ സമ്പർക്കമുണ്ടെന്നും മന്ത്രി അറിയിച്ചു കോവിഡ് പ്രതിരോധ പ്രയത്നങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്നതായും എന്നാൽ പൂർണമായും ആശ്വസിക്കാൻ സമയമായിട്ടില്ലെന്നും അവർ പറഞ്ഞു

മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

ഏറ്റവും കൂടുതൽ പേർ മരിച്ചതും മഹാരാഷ്ട്രയിലാണ്

രോഗവ്യാപനം വേഗത്തിലായ പശ്ചാത്ത്ലൂത്തിൽ മുംബൈയിൽ അടച്ചുപൂട്ടൽ കർശനമായി നടപ്പാക്ക്റ്റൻ് സർക്കാർ തീരുമാനിച്ചു

രാജസ്ഥാൻ ഒഡീഷ പഞ്ചാബ് സ്റ്റ്സ്ഥാനങ്ങൾ ലോക്ഡൌൺ കാലാവധി നീട്ടാൻ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയ്സ് മരണസംഖ്യയിൽ ഇറ്റലിയാണ് മുന്നിൽ

ഒന്നര ലക്ഷത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

ഡെർബിയിലെ എൻ എച്ച് എസ് ആശുപത്രിയിൽ ഒരാഴ്ചയോളമായി കോവിഡിന് ചികിൽസയിലായിരുന്ന സിബി ഇന്നലെ ഉച്ചുയോടെയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ഗൾഫ് കോവിഡ് ബാധ പടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകളിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്ക്ടി

ഖത്തറിൽ സമൂഹവ്യാപന്നും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്

അതേസമയം ജാഗ്രത തുടരണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു

രാജ്യത്ത് ഹൈഡ്രോക്സി ക്ലോറോകിൻ മരുന്നിന് ക്ഷാമമുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ

ആഭ്യന്തര ആവശ്യത്തിനുള്ള മരുന്ന് സംഭരിച്ചിട്ടുണ്ടെന്നും അധികമുള്ളത് മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നതെന്നും സർക്കാർ വിശദീകരിച്ചു

കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ നിയന്ത്രണങ്ങൾ അയവുവരുത്താനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം ഘട്ടംഘട്ടമായി നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതാകും ഉചിതമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനൊം ഗെബ്രയേസസ് ജനീവയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി

അതേസമയം ഇത്തരം യൂണിറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യമുള്ള ജീവനക്കാരെ മാത്രമേ നിയോഗിക്കാവൂ എയർകണ്ടീഷണർ ഫാൻ കടകൾക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ പരമാവധി മൂന്ന് ജീവനക്കാട്ട്ര് നിയോഗിച്ചു തുറന്ന് പ്രവർത്തിക്കാം

ഇവരിൽ എട്ട് വിദേശികളും ഉൾപ്പെടുന്നു പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട്

ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ഏഴ് പേർ ഉൾപ്പെടെയാണിത്

ജില്ലയിൽ പുതിയ പോസിറ്റീവ് കേസുകളില്ല

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

ഇതിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു